കേരളപ്പിറവി ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഗവർണറും മുഖൃമന്ത്രിയുമടക്കമുള്ള പ്രമുഖർ

സംസ്ഥാനത്തെ ബീച്ചുകളിലും പാർക്കുകളിലും ന് മ്യൂസിയങ്ങളിലും ഇന്നു സഞ്ചാരികൾക്ക് മുതൽ പ്രവേശാനാനുമതി കോവിഡ് മാനദണ്ഡങ്ങൾ നടപടി കൃത്യമായി പാലിച്ചുകൊണ്ട്

സംസ്ഥാനവ്യാപകമായി പ്രതിപക്ഷ പ്രതിഷേധം

ഈ പ്രതിസ്ന്ധികളെല്ലാം തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസവും പ്രധാനമന്ത്രി നരേന്ദ്രമോഴി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ എല്ലാ മലയാളികൾക്കും കേരളപ്പിറവി ആശംസകൾ നേർന്നു കേരളരൂപീകരണത്തിനു ശേഷം ഇതുവരെ നിരവധി രംഗങ്ങളിൽ കേരളത്തിന് മാതൃകാസ്ഥാനത്തെത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നമുക്ക് ഒരുമിച്ചു പങ്കിടാമെന്നും മതനിരപേക്ഷതയുടെയും ജനാധിപതൃത്തിൻറെയും സാഹോദരൃത്തിൻറെയും മൂല്യങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ടുപോകാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു

തലസ്ഥാന ദ്വീപായ കവറത്തിയിൽ അഡൈസർ ടു അഡ്മിനിസ്ട്രേറ്റർ ശ്രീ

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടാ മാരത്തോൺ ഓട്ടമത്സരവും സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു

സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു

കോവിഡിന് ശേഷം സംസ്ഥാനത്തെ വിനോദസഞ്ചാര രംഗം പൂർണ സ്ഥിതിയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിൻറെ ഭാഗമായാണ് നടപടി

പ്രവേശനാനുമതി ആവശ്യമില്ലാത്ത ബീച്ചുകൾ പോലുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക കവാടം രൂപികരിച്ച് താപനില പരിശോധിക്കുകയും സാനിറ്റൈസർ ഉപയോഗം കൈകഴുകൽ മുതലായ നടപടികൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തുകയും ചെയ്യും

മ്യൂസിയം പാർക്ക് എന്നിവിടങ്ങളിൽ ഓൺലൈൻ എസ്എംഎസ് ടിക്കറ്റ് സംവിധാനം നടപ്പാക്കും വാഹനങ്ങൾക്ക് പരമാവധി ഒരു മണിക്കൂർ മാത്രമേ പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ

നവീകരിച്ച കൊലുമ്പൻ സമാധി സ്മാരകം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പ്രകൃതി സൌഹൃദ ബീച്ചുകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ഏക ബീച്ചാണ് കാപ്പാട്

ഡി

സംസ്ഥാനതല സമര പരിപാടി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാവിലെ സെക്രട്ടറിയേറ്റിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്തു

മുഞ്ചേശ്ചരം മുതൽ പാറശ്ശാല വരെ ദേശീയപാതയിലും അല്ലാത്തൃ ഇടങ്ങളിൽ സംസ്ഥാന പാതയിലും കോവിഡ് മാനദണ്ഡങ്ങൾപ്പില്ലിച്ച് ഓരോ അമ്പത് മീറ്ററിൽ അഞ്ചുപേർ എന്ന രീതീയിലാണ് സമരം

കൃകൃകൃകൃകൃകൃ കോവിഡ് സന്ദേശം ഇൻട്രോ അടുത്ത രണ്ടാഴ്ച കാര്യക്ഷമമായ രീതിയിൽ നിയന്ത്രണങ്ങൾ പാലിച്ചാൽ തലസ്ഥാനത്തെ കോവിഡ് കേസുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്ന് ട്രിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

എസ് ആകാശവാണി വാർത്തുകളോട് പറഞ്ഞു

സാഹിത്യരംഗത്തെ സമഗ്രസംഭാവനയ്ക്കാണ് ബഹുമതി

മന്ത്രി എ

ഐപിഎല്ലിൽ ഇന്ന് ചെന്നൈ സ്പ്പ്പർകിംഗ്സ് ഇലവൻ പഞ്ചാബിനെയും കൊൽക്കത്ത ഉട്ട്ന്റ്റ് ്റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനേയും നേരിടും